ഊർജ്ജിതമായി ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിന്റെ നാമ നിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള അവസാന ദിനം നാളെ

തായ്ലാന്റിൽ പൊതുതിരഞ്ഞെടുപ്പ് ഇന്ന്

ബാംഗ്ലൂരിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്ങ്സിന് ജയം

ജെ

ജെ

യും സഖ്യ കക്ഷികളായ ജനതാദൽ യു ഉം എൽ

ബീഹാറിൽ ശത്രുഘൻ സിംഹ ഉൾപ്പെടെ ഏഴ് സിറ്റിംങ്ങ് എം

മാർക്ക് ബി ജെ

സീറ്റ് നൽകിയില്ല ശത്രുഘൻ സിംഹയ്ക്കു പകരം രവിശങ്കർ പ്രസാദ് പട്നയിൽ നിന്ന് ജനവിധി തേടും കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംങ് നവാദയ്ക്കു പകരം ബഹുസരായി ൽ മത്സരിക്കും കേന്ദ്ര മന്ത്രി രാധാ മോഹൻ സിംങ് ഈസ്റ്റ് ചംബാരനിൽ നിന്നും ജനവിധി തേടും

ജെ

തെലങ്കാനയിൽ നിന്നുള്ള ആറ് സീറ്റുകളും ഉത്തർപ്രദേശിലെ മൂന്ന് സീറ്റുകളും പശ്ചിമ ബംഗാ ളിലെയൂം കേരളത്തിലെയൂം ഓരോ സീറ്റുകളും കേന്ദ്രമന്ത്രി ജെ

നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ എച്ച്

ദേവഗൌഡ കർണ്ണാടകയിൽ തുംകൂറിൽ നിന്ന് മത്സരിക്കും ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രിയും പി ഡി

മല്ലി കാർജ്ജുൻ ഖാർഗേ കർണ്ണാട്ടകയിലെ ഗുൽബർഗയിൽ നിന്നും മുൻമുഖ്യമന്ത്രി ഹരീഷ് റ്റാവത്ത് നൈനിറ്റാളിൽ നിന്നും മത്സരി ക്കും ന്യൂഡൽഹിയിൽ ഇന്നലെ രാത്രി ചേർന്ന കേന്ദ്ര തിരഞ്ഞെ ടുപ്പ് സമിതിയാണ് പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയത്

രാഹുലിനായി സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻമാറാൻ നിലവിലെ സ്ഥാനാർത്ഥി ടി സിദ്ദിഖ് സന്നദ്ധത പ്രകടിപ്പിച്ചു ഇതുസംബന്ധിച്ച തീരുമാനം ഇന്ന് ഉണ്ടാകുമെന്ന് കെ

സി

അതിനിടെ കോൺഗ്രസ്സ് ഇന്നലെ പുറത്തിറക്കിയ എട്ടാം ഘട്ട സ്ഥാനാർത്ഥിപട്ടികയിലും കേരള ത്തിലെ വയനാട് വടകര മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേര് ഉൾപ്പെട്ടിട്ടില്ല

ടിവി ചാനലുകൾ അടക്കമുള്ള മാധ്യമങ്ങൾക്കും വെബ്സൈറ്റുകൾക്കും കമ്മീഷൻ ഇത് സ്ംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യമെങ്ങും ബാധവത്കരണ പരിപാടികൾ നടക്കും

റോബോട്ട് കോച്ച് ക്ഷയരോഗത്തിന് കാരണമാകുന്ന ട്യൂബർകുലോസിസ് ബാക്ടീരിയയെ കണ്ടെത്തിയതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം ക്ഷയരോഗത്തിനെതിരെ ലോകമെങ്ങും പ്രതിരോധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്

ഇന്ത്യയിൽ ഓരോ മിനിട്ടിലും ഒരാൾ ക്ഷയരോഗം മൂലം മരിക്കുന്നു എന്നാണ് കണക്ക്

ലോകാരോഗ്യ സംഘടനയുടെ ഡോട്ട്സ് ചികിത്സ വഴി ക്ഷയരോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇനിയും ഏറെദൂരം മുന്നോട്ടു പോകാൻ ഉണ്ട്

നിലവിൽ ഈസ്റ്റേൺ നാ്വിക കമാൻഡിൽ ഫ്ളാഗ് ഓഫീസർ കമാൻഡിങ് ഇൻ ചീഫാണ് കരംഭീർ സിങ്

പൂഞ്ച് ജില്ലയിൽ യാതൊരു പ്രകോപ നവും കൂടാതെ പാക്കിസ്ഥാൻ വെടിവയ്പ് നടത്തുകയായിരുന്നു എന്ന് പ്രതിരോധ വക്താവ് ആകാശവാണിയോട് പറഞ്ഞു ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചുടിച്ചു

ഭീകരാക്രമണങ്ങൾക്കെതിരെ ശക്തമായ നടപടിയാണ് കേന്ദ്രഗവൺമെന്റ് സ്വീകരിക്കുന്നത് മേം ഭി ചൌകീദാർ പരിപാടിയുടെ ഭാഗമായി ഹൈദ്രരാബാദിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പ്രധാന പാർട്ടിക ളെല്ലാം അവരുടെ പ്രചാരണ പരിപ്പാടികൾ പൂർത്തിയാക്കി കഴി ഞ്ഞു പ്രത്യുത് ചാൻ ഓച്ച സുദ്രത് കെയൂറഫാൻ എന്നിവരാണ് പ്രമുഖ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിമാർ

മൊസാബിക് സിംബാബെ മലാവി എന്നിവിടങ്ങളിൽ ഇരുപത് ലക്ഷത്തിലധികം ആളുകളെ യാണ് ചുഴലിക്കാറ്റ് ബാധിച്ചത്

റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ ഏഴ് വിക്കറ്റുകൾക്കാണ് ചെന്നൈ സൂപ്പർ കിങ്ട്സ് പരാജയപ്പെടുത്തിയ ത്

ടോസ് നേടിയ ചെന്നെ ബൌളിംങ് തിരഞ്ഞെടുക്കുകയായിരുന്നു ചെന്നൈയുടെ സ്പിന്നർമാരുടെ മികച്ച പ്രകടനം ബാംഗ്ലൂരിന്റെ ബാറ്റിംഗ് നിരയെ തകർത്തു

ഉദ്ഘാടന പരിപാടികൾ ഇല്ലാതെയാ യിരുന്നു ഇത്തവണത്തെ ഐ

ഉദ്ഘാടന പരിപാടികൾക്ക് ചെലവാകുന്ന തുക സൈനികരുടെ ക്ഷേമത്തിനും പുൽവാമ ഭീകരാക്രമണത്തിൽ വിരമൃത്യു വരിച്ച സി

എഫ് ജവാൻമാരുടെ കുടുംബങ്ങൾക്കുമായി സംഭാവന ചെയ്യാൻ സുപ്രീംകോടതി നിയമിച്ച ബി സി സി ഐ യുടെ ഭരണ നിർവ്വ ഹണ സമിതി തീരുമാനിച്ചിരുന്നു

എല്ലിൽ ഇന്ന് രണ്ട് മത്സര ങ്ങൾ കൊൽക്കത്തയിൽ നാല് മണിക്ക് നടക്കുന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺ റൈസേഴ്സ് ഹൈദ്രാബാ ദിനെ നേരിടും രാത്രി എട്ട് മണിക്ക് മുംബൈയിൽ നടക്കുന്ന മത്സ രത്തിൽ മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ ഏറ്റുമുട്ടും ന്യൂസ്ഡെസ്ക് ആകാശവാണി